അമേരിക്ക ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനം രൂക്ഷ്മായി ്തുടരുന്നു

ശിവശങ്കർ ഹൈക്കോടതിയിൽ ജാമൃ ഹർജി നൽകി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും

ഉദ്ഘാടനമത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സും എടികെ മോഹൻബഗാനും ഏറ്റുമുട്ടും

വയനാട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കുറവ് രോഗികളുള്ളത് അതേസമയം തിരുവനന്തപുരം ജില്ലയാണ് രോഗമുക്തിയിൽ മുന്നിൽ

നിലവിൽ നാലര ലക്ഷത്തോളം പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നുണ്ട്

ബ്രസീൽ ഇറ്റലി റഷ്യ തുടങ്ങിയിട്ട് രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ്

കുട്ടികൾക്കായി മെച്ചപ്പെട്ട ലോകം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്

ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇന്ന് ബാലാവകാശദിനമായി ആചരിക്കുന്നു

ബാലവേല ബാലപീഡനം കടത്തിക്കൊണ്ടുപ്പോക്ടൽ അതിക്രമം എന്നിവയിൽ നിന്നും സംരക്ഷിച്ച് നല്ല വിദ്യാഭ്യാസം ഭക്ഷണം ജീവിതസൌകര്യം എന്നിവ ഒരുക്കി സന്തോഷ്ടപ്പ്രദ്മായ കുട്ടിക്കാലം ആസ്വദിച്ചു വളരാൻ കൂട്ടികളെ അനുവദിക്കുക് എന്നതാണ് സമൂഹത്തിന് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ

ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുമെന്ന് അറിയിച്ചു

ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് മെഡിക്കൽബോർഡിന് രൂപം നൽകാൻ എറണാകുളം ഡിഎംഒക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി

സ്ഥാനാർത്ഥിക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഏജന്റ് നിർദ്ദേശകൻ എന്നിവർക്കു പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്കുകൂടി പരിശോധന നടക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കാം

കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പിപിഇ കിറ്റ് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് വൈകിട്ട് അഞ്ചു മണി മുതൽ ആറു മണി വരെയുള്ള ഒരു മണിക്കൂർ പോളിംഗ് ബൂത്തിലെത്തി വോട്ടു ചെയ്യാം

ചില താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലാണ് വിശദാശംങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഹൈ ലെവൽ കമ്മിറ്റി മീറ്റിംഗിലാണ് തീരുമാനം

സ്വർണ്ണവില കുറഞ്ഞു

ഉദ്ഘാടന മത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സും എടികെ മോഹൻ ബഗാനും ഏറ്റുമുട്ടും

കോവിഡ് ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയിലാദ്യമായാണ് ഇത്ര വലിയൊരു കായികോത്സവം സംഘടിപ്പിക്കുന്നത് മത്സരങ്ങളിൽ കാണികൾക്ക് പ്രവേശനം ഇല്ല